ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ വർദ്ധനും സംബന്ധിക്കും ദേദ മൈസൂർ സർവകലാശാലയുടെ ശതാബ്ദി ബിരുദദാന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസ് വഴി അഭിസംബോധന ചെയ്യും

ദേദ രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും കുറയുന്നു കഴിഞ്ഞ രണ്ടുദിവസമായി എട്ടുലക്ഷത്തിൽ താഴെയാണ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം

മലപ്പുറത്താണ് ഇന്നലെ കൂടുതൽ രോഗബാധ

മറ്റ് ജില്ലകളിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ആയിരത്തിൽ താഴെയാണ് ദ്ദേ കോവിഡിനെ നേരിടുന്നതിൽ കാണിക്കുന്ന അശ്രദ്ധയും അലംഭാവവും ആപത്താണെന്ന് നടൻ മമ്മുട്ടി പറഞ്ഞു കോവിഡിനെതിരെ വാക്സിൻ ഫലവത്താകുന്നതുവരെ ജാഗ്രത തുടരണമെന്ന് അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു

സമ്പർക്ക വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ മരണസംഖ്യ കൂടാതിരിക്കാൻ കനത്ത ജാഗ്രതയിലാണ് ജില്ലയിലെ ആരോഗ്യ വിഭാഗം

വിശദാംശങ്ങളുമായി ജഷിതകുമാരി ദേദ റോഡിലെ തിരക്കനുസരിച്ച് സ്വയം പ്രവർത്തിക്കുന്ന ട്രാഫിക് നിയന്ത്രണ സംവിധാനമാണ് ഇന്റലിജൻസ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം ഈ സംവിധാനം വഴി ട്രാഫിക് സിഗ്നൽ നിയന്ത്രിക്കുന്നതിനും ഗതാഗത ലംഘനം പിടികൂടുന്നതിനും സാധിക്കും

ഈ സംവിധാനം റോഡുകളിലെ തിരക്കും അപകടങ്ങളും കുറയ്ക്കുമെന്നും ട്രാഫിക് പൊലീസിന്റെ കൃത്യനിർവഹണത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആധുനിക സാങ്കേതിക വിദ്യയും വിവര സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം ഉറപ്പാക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഇ ഹെൽത്ത് സൊല്യൂഷൻസ് പദ്ധതി ഇതിനോടൊപ്പം മന്ത്രി കെ

കിരീടം നേടി ആറു മാസത്തിനു ശേഷം ഇന്നലെ കൊൽക്കത്തയിലെ ഒരു ഹോട്ടലിൽ നടന്ന ചടങ്ങിലാണ് കിരീടം സമ്മാനിച്ചത്

കിരീടം നേടിയ മോഹൻ ബഗാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു

എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും കിംഗ്സ് ഇലവൻ പഞ്ചാബിനും ജയം

അബുദാബിയിൽ നടന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരവും സമനിലയിലായതോടെ സൂപ്പർ ഓവറിലേക്ക് നീണ്ടു

ഇന്ന് ചെന്നൈ സൂപ്പർകിംഗ്സ് അബുദാബിയിൽ രാജസ്ഥാൻ റോയൽസിനെ നേരിടും ദേദ കേരള രഞ്ജി ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും പരിശീലകനുമായിരുന്ന എ

ദ്ദേ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് രാഹുൽഗാന്ധി എം

നാളെയും മറ്റന്നാളും അദ്ദേഹം വയനാട്ടിൽ ഉണ്ടാകും ഇന്ന് ഉച്ചയ്ക്ക് മലപ്പുറം കലക്ടറേറ്റിൽ ജില്ലയിലെ കോവിഡുമായി ബന്ധപ്പെട്ട യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും ദേദ കാലം ചെയ്ത മാർത്തോമ്മ സഭാധ്യക്ഷൻ ഡോ ജോസഫ് മാർത്തോമ്മ മെത്രാപ്പൊലീത്തയുടെ സംസ്കാരം ഇന്ന് നടക്കും

ജാംനഗർ തിരുനൽവേലി ദ്വൈവാര സ്പെഷ്യൽ ട്രയിനുകൾ നവംബർ ആറു മുതൽ സർവീസ് നടത്തും